യൂഎഇ ഗ്വൺമെന്റിന്റെ ഓർഡർ ഓഫ് സയെദ് പുരസ്കാരം ന്രേന്ദ്രമോദി ഏറ്റുവാങ്ങും സാമ്പത്തിക വളർച്ചാ നിരക്ക് ത്വരിതപ്പെടുത്താൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉത്തേജന നടപടികൾ പ്രഖ്യാപിച്ചു

കോട്ടയത്തെ കെവിൻ വധക്കേസിൽ പത്ത് പേരുടെ ശിക്ഷാ വിധി ഇന്നുണ്ടായേക്കും

ള ൽ ൾ മൂന്ന് രാജൃങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി യുഎഇ തലസ്ഥാനമായ അബുദാബി യിലെത്തി

റുപെ കാർഡിന്റെ പ്രവർത്തനത്തിനും അദ്ദേഹം ഔപചാ രികമായ തുടക്കം കുറിക്കും യുഎഇ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സയെദ് പുരസ്കാരവും പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും തുടർന്ന് ബഹറിനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിക്കും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ബഹറിൻ സന്ദർശിക്കുന്നത് സാമ്പത്തിക വളർച്ചാ നിരക്ക് ത്വരിതപ്പെടുത്താൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചു പൊതുമേ ഖലാ ബാങ്കുകൾക്ക് നേരത്തെ നൽകുമെന്നറിയിച്ചിരുന്ന എഴുപതി നായിരം കോടിയോളം രൂപയുടെ ്മൂലധന് ഉത്തേജന സഹായം ഉടൻ നൽകും

അതിനിടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങൾ നേരി ടുകയാണെന്ന് ഗവൺമെന്റിന്റെ ഉപദേഷ്ടാക്കൾ പോലും ഏറ്റ് പറ യുമ്പോൾ പ്രധാനമന്ത്രി മൌനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ആവശ്യക്കാരുടെ കൈക ളിലേക്ക് പണം എത്തുന്ന തരത്തിൽ സമ്പദ്മേഖലയെ ശക്തിപ്പെടു ത്തണമെന്ന് രാഹുൽ ഗാന്ധി ടിറ്ററിൽ ആവശ്യപ്പെട്ടു കണ്ണൂരിലെ പ്രളയ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ പങ്കെടുത്ത സേനാ വിഭാഗങ്ങളേയും വകുപ്പുക ളേയും സന്നദ്ധ പ്രവർത്തകരേയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ആദരിക്കും മന്ത്രിമാരായ ഇ

ജയരാജൻ കെ

ശൈ ലജ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കണ്ണൂരിലെ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ഓഫീസ് കെട്ടിടവും രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും താവക്കരയി ലാണ് പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്

നേരത്തെ മലപ്പുറം കവളപ്പാറയടക്കം പ്രളയ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു പ്രളയാനന്തര പുനർ നിർമ്മാണത്തിനും പുനരധിവാസത്തിനും പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി കത്തയക്കുകയും ചെയ്തു കേന്ദ്രവും സംസ്ഥാ നവും പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്ക ണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു കോട്ടയത്തെ കെവിൻ വധക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ പത്ത് പേരുടെ ശിക്ഷ ഇന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കും കെവിൻ വധം ദുരഭിമാനകൊല്യാണെന്ന് കോടതി കണ്ടെ ത്തിയിരുന്നു കെവിന്റെ ഭാരൃ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോ അടക്കം പത്ത് പേർ കുറ്റക്കാരാണെന്ന് വ്യാഴാഴ്ച്ച കോടതി വിധി പ്രസ്താവിച്ചിരുന്നു ഭാര്യാപിതാവ് ്ചാക്കോ ജോൺ അടക്കം നാല് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു ലഷ്കർ ഇ ഭീകരർ തമിഴ്നാട്ടിൽ നുഴഞ്ഞ് കയറിയിട്ടുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും പൊലീസ് ജാഗ്രത തുടരുകയാണ് എന്നാൽ ഇതിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ട സാഹ ചര്യമില്ലെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് അറിയിച്ചു

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ പരിശോധന തുടരുകയാണ് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സമവായത്തിലൂടെ യുഡിഎഫ് തീരു മാനിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണക്കുമെന്ന് കേരളാ കോൺഗ്രസ് എം വർക്കിങ്ങ് ചെയർമാൻ പി

ഇതിന് സഹായക മായ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതാക്കളെ ചുമതലപ്പെടുത്തിയി ട്ടുണ്ടെന്ന് ജോസഫ് അറിയിച്ചു തൊടുപുഴയിൽ പാർട്ടി സ്റ്റിയറിങ്ങ് ന കമ്മറ്റിക്ക് ശേഷം മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം വിപ്പ് നൽകുന്നതിനും ചിഹ്നം അനുവദിക്കുന്നതിനും ജില്ലാ പ്രസി ഡന്റുമാർക്ക് നൽകിയിരുന്ന പ്രത്യേക അധികാരം തിരിച്ചെടുത്ത് പാർട്ടി ചെയർമാനിൽ നിക്ഷിപ്തമാക്കിയ നടപടിക്ക് സ്റ്റിയറിങ്ങ് കമ്മറ്റി യോഗം അംഗീകാരം നൽകിയതായും പി

ജോസഫ് അറിയിച്ചു ന്യൂഡൽഹിയിലെ എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ആരോഗൃ നില വീണ്ടും വഷ ളായതായി ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു വെന്റിലേറ്റർ സംവി ധാനത്തിൽ കിടത്തിയിരിക്കുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരുമടക്കം നിരവധി പേർ ആശുപത്രി യിലെത്തി കണ്ടിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാതിലൂടെ നാളെ ജനങ്ങളുമായി സംവദിക്കും

ആകാശവാണി ദൂരദർശൻ നിലയങ്ങളിലും ആകാ ശവാണി വെബ്സൈറ്റിലും പരിപാടി ലഭ്യമാകും ഹിന്ദി പ്രക്ഷേ പണം കഴിഞ്ഞാൽ ഉടൻ പ്രാദേശിക ഭാഷകളിൽ ആകാശവാണി പരി പാടി പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് പ്രാദേശിക ഭാഷകളിൽ പുനപ്രക്ഷേപണവും ഉണ്ടാകും ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ

അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ഇഷാന്ത് ശർമ്മയാണ് വെസ്റ്റ്ഇൻഡീസിനെ തളച്ചത് ഡ്യൂറാന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ഗോകുലം എഫ്സി മോഹൻബഗാനെ നേരിടും വൈകീട്ട് അഞ്ചിന് കൊൽക്കത്തയി ലാണ് മത്സരം ഗോകുലം ആദ്യമായാണ് ഡ്യൂറാന്റ് കപ്പ് ഫൈന ലിൽ എത്തുന്നത്

വൈകീട്ട് മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും കൊങ്കൺ പാതയിൽ മംഗലൂരുവിന് സമീപം റെയിൽപാളത്തി ലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഇന്നത്തെ തിരുവനന്തപുരം ലോകമാനൃ തിലക് നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി തിരുവനന്ത പുരം നിസാമുദ്ദീൻ പ്രതിവാര എക്സ്പ്രസും ഓഖാ എറണാ കുളം എക്സ്പ്രസും റദ്ദാക്കിയിട്ടുണ്ട് കൊച്ചുവേളി ചണ്ഡിഗഡ് സമ്പർക്ക്ക്കാന്തി എക്സ്പ്രസ് എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് കൊച്ചു വേളി ഗംഗാനഗർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ ഷൊർണൂർ പോത്തന്നൂർ വഴി തിരിച്ചു വിട്ടു കണ്ണൂർ കേളകം ഗ്രാമപഞ്ചായത്തിലെ സോയിൽ പൈപ്പിങ്ങ് പ്രതി ഭാസമുണ്ടായ സ്ഥലങ്ങളിൽ ഭൂജല വകുപ്പ് പരിശോധന നടത്തി

ശാന്തിഗിരി വെള്ളൂന്നി മാങ്കുളം മേഖലകളിലാണ് സംഘം പരി ശോധന നടത്തിയത് ൃ മഴക്കെടുതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപ്പൊട്ടലും സംഭവിച്ച ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ജിയോളജിക്കൽ വിഭാഗം പരി ശോധന ആരംഭിച്ചു രണ്ട് പേർ വീതം അടങ്ങുന്ന അഞ്ച് സംഘങ്ങ ളാണ് ഉരുൾപ്പൊട്ടിയ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരി ശോധിക്കുന്നത് ശാന്തൻപാറ പഞ്ചായത്തിലെ മുള്ളൻതണ്ട് മലനിരയിൽ ഗർത്തം ഉണ്ടായതിന് കാരണം സോയിൽ പൈപ്പിങ്ങ് ആണെന്ന് ജില്ലാ ജിയോ ളജിസ്റ്റ് അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയി രുത്തൽ

രാജു ഉദ്ഘാടനം ചെയ്യും തീർപ്പാക്കിയ പരാതികളിലെ നടപടികൾ അപേക്ഷകർക്ക് രേഖാമൂലം കൈമാറും ഇന്നും പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരി ക്കും

ഏലക്കാ വില സർവ്വകാല റെക്കോർഡിലെത്തിയ ശേഷം കുത്തനെ ഇടിഞ്ഞു

ഏലക്കാ വിളയെടുപ്പ് സജീവമായതോടെയാണ് വില കുത്തനെ കുറ ഞ്ഞത് ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം കലാമണ്ഡലം ഗോപിക്ക് സമ്മാനിച്ചു

കാസർകോട് മഞ്ചേശ്വരത്ത് വാമയൂർ ചെക്ക്പോസ്റ്റിൽ പന്ത്രണ്ടര ലക്ഷം ്രൂപയുടെ കുഴൽപ്പണം പിടിച്ചെടുത്തു കർണാടക ട്രാൻസ്പോർട്ട് ബസിൽ നിന്നാണ് രേഖകളില്ലാതെ കടത്തിയ പണം എക്സൈസ് സംഘം പിടികൂടിയത് സംഭവത്തിൽ കുമ്പള കോയി പ്പാടിയിലെ അഹമ്മദ് ദിൽഷാദിനെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് മുക്കത്തെ മുത്തലാഖ് കേസിൽ പരാതിക്കാരിക്ക് എതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ മുക്കം പൊലീസ് കേസെടുത്തു മുത്തലാഖ് നിരോധന നിയമം വന്ന ശേഷം സംസ്ഥാ നത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേസിലെ കാരശേരി സ്വദേശി യായ പരാതിക്കാരിക്കാണ് ഭീഷണി നേരിടേണ്ടി വന്നത്

കോഴിക്കോട്ട് ബാലഗോകുലം മഹാശോഭയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധർമ്മം ഇല്ലാതെയാക്കി ധർമ്മത്തെ നിലനിർത്തി സാമൂഹൃ പരി വർത്തനത്തിന് പ്രേരണയാവുകായിയിരുന്നു ശ്രീകൃഷ്ണനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു